അമേരിക്ക അടുത്ത നാലൂ വർഷം ആരു ഭരിക്കണമെന്നത്തിന്റെ വിധിയെഴുത്തു ഇന്ന് ട്രംപ് ബൈഡൻ പോരാട്ടം ശക്തം

ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് കർണാടക ഒഡീഷ ഹരിയാന ഛത്തീസ്ഗഡ് തെലങ്കാന നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രത്യേക മുൻകരുതൽ പാലിച്ചാണ് വോട്ടിംഗ് നടത്തിയത്

ബിഹാറിലെ ഫോർബ്സ്ഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് കാലത്തും തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി മുന്നോട്ടുവന്ന ബീഹാറിലെ ജനത ജനാധിപത്യത്തിന് തങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് വിളിച്ചോതുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

കോവിഡ് ഇത് പോലെ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്തും വേണ്ടത്ര തയ്യാറെടുപ്പുകളോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

കത്തിഹാർ ജില്ലയിലെ കൊറയിൽ നടന്ന ബിഹാറിലെ തിരഞ്ഞെടുപ്പ് റാലി്യെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുടിയേറ്റ അദ്ദേഹം തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാരും ബീഹാർ സർക്കാരും നടപടിയും കൈക്കൊണ്ടില്ലന്നും യാതൊരു അദ്ദേഹം ആരോപിച്ചു

ബംഗാൾ ഉൾക്കടലിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന അഭ്യാസത്തിൽ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാഷ്ട്രങ്ങളിലെ നാവികസേനകൾ പങ്കെടുക്കുന്നുണ്ട്

നാല് സൌഹൃദ രാഷ്ട്രങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള പരസ്പര സഹകരണം ധാരണ എന്നിവ മലബാർ ഉറപ്പാക്കും തുറന്നതും സമഗ്രവുമായ ഇന്തോ പസഫിക് മേഖല നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമം തുടങ്ങിയവയിൽ നാലു രാഷ്ട്രങ്ങളും പുലർത്തുന്ന സമാനതകളും സംയുക്ത അഭ്യാസത്തിൽ പ്രകടമാകും

കടുവാ സംരക്ഷണത്തിൽ സുപ്രധാന നേട്ടം കൈവരിച്ച പന്നാ കടുവസംരക്ഷണ കേന്ദ്രത്തെ അദ്ദേഹം ടിറ്ററിലൂടെ അഭിനന്ദിച്ചു

ഒരു ദശ ലക്ഷത്തിലേറെ ജനവാസമുള്ള നഗരങ്ങളിലെ വായു ഗുണനിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശേഷി വർധിപ്പിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് ഇൌ തുക സഹായകരമാകുമെന്ന് കേന്ദ്ര ധനമൃന്തി നിർമല സീതാരാമൻ ടിറ്ററിൽ കുറിച്ചു

യുഎസ് പ്രസിഡൻറും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർഥിയുമായ ഡോണൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർഥിയായ ജോ ട്രെബഡനും തമ്മിലാണ് പോരാട്ടം പൊതുവോട്ടെടുപ്പിൽ ജയിക്കുന്ന പ്രതിനിധികൾ ചേർന്ന ഇലക്ടറൽ കോളജാണ് പ്രസിഡൻറിനെയും വൈസ് പ്രസിഡൻറിനെയും തെരള്ഞ്ഞട്ടുക്കുന്നത്

റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർഥിയായി മൈക്ക് പെൻസ് മത്സരിക്കുമ്പോൾ ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസാണ് ഡെമോക്രാറ്റിക്ക് സ്ഥാനാർഥി

ഓൺലൈൻ ആയി വെബിനാർ രൂപത്തിലാണ് ഒരു ദിവസം നീളുന്ന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഉയർന്നുവരുന്ന പ്രവണതകൾ എന്നതാണ് ഈ വർഷത്തെ കോൺഫറൻസിന്റെ ചർച്ചാവിഷയം

പൊതുമേബ്ല ഇടപാട് നിരക്കുകൾ ഉയർന്ന തോതിൽ ് വർദ്ധിപ്പിക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതായും എന്നാൽ നിരക്കുകളിൽ യാതൊരുവിധ വർദ്ധനയും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു

ടോസ് നേടിയ സൺ റൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള മുംബൈയെ പോയിന്റ് കീഴടക്കി പ്ലേഓഫ് സാധൃതകൾ നിലനിർത്താൻ ഹൈദരാബാദ് പരിശ്രമിക്കുമെന്ന് ഉറപ്പാണ്